പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലെത്തിയത് കറുത്ത ബാഡ്ജ് ധരിച്ച്

ആദ്യ ഇന്ത്യൻ വനിതയായി മിതാലി രാജ്

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേഷ്

അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം ശക്തമാക്കുകയാണ് ഷാങ്ഹായ് ഉച്ചുകോടിയുടെ ലക്ഷ്യം ഭീകരതയ്ക്കെതിരെയുളള സഹകരണം ശക്തമാക്കുകയും മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പു വരുത്തുകയുമാണ് ഉച്ചകോടിയിൽ ഇന്ത്യ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജനങ്ങൾക്ക് നൂലാമാലകൾ ഇല്ലാതെ സ്വർണ നിക്ഷേപം നടത്തുന്നതിനാണ് പദ്ധതിയിൽ മാറ്റം വരുത്തിയത്

മെചുരിറ്റി പീരീഡ് കഴിയുമ്പോൾ ഒരുവർഷത്തിന്ശേഷമുള്ള അതത് മാസത്തെ പലിശയും ലഭിക്കും

കാശ്മീരിൽ സമാധാനം നിലനിർത്താൻ ക്കേന്ദ്രഗവൺമെന്റ് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി റംസാൻ പ്രിയമാണ് പറഞ്ഞു നോമ്പ് സമയത്ത് ഭീകരവാദികൾക്കെതിരെയുള്ള ി നടപടികൾ നിർത്തിവയ്ക്കുന്നത് ദീർഘിപ്പിക്കുന്നതിനെക്കൂറിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചശേഷം തീര്ുമാനിക്കും സുരക്ഷാസേനയുടെ നേർക്ക് കല്ലെറിയുന്നവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്നും അത് സാമൂഹൃവിരുദ്ധ പ്രവർത്തനമാണെങ്കിലും യുവാക്കളുടെ ഭാവിയെക്കരുതിയാണ് കേസ് പിൻവലിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു കാശ്മീരിൽ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്ന പാകിസ്ഥാനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു

തീവ്രവാദികൾ തിരിച്ചും വെടിവച്ചു

തിരിച്ചറിയപ്പെടാത്ത തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് ഇവർക്കായി മലനിരകളിൽ സൈനൃം തിരച്ചിൽ നടത്തുകയാണ്

ഇന്നലെ ത്രിപുര ഗവൺമെന്റ് നൽകിയ സ്വീകരണത്തിൽ അഗർത്തലയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപ്തി വടക്കു കിഴക്കൻ മേഖലയിൽപ്പെട്ട സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് ആത്മാർത്ഥ്മായ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

വനിതാ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ത്രിപുര മാതൃകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ആസിയാൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ ത്രിപുരയ്ക്ക് നിർണ്ണായകസ്ഥാനമു ന്നും രാഷ്ട്രപതി പറഞ്ഞു

കേന്ദ്ര ഐ

ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഫോൺ നിർമ്മാതാക്കൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും ഫേസ് ബുക്ക് അനുമതി നൽകിയിരുന്നു നിയമലംഘനമാണ് ഫേസ്ബുക്ക് നടത്തിയതെന്ന് മന്ത്രാലയം ചൂ ിക്കാട്ടി

ഉപയോക്താക്കളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഫേസ്ബുക്ക് ഉറപ്പു നൽകിയിരുന്നു

വാഷിംഗ്ടണിൽ ര ാഴ്ചയിലൊരിക്കൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഐ എം എഫ് വക്താവ് ജെറി റൈസ് അറിയിച്ചതാണിത്

ഇന്ത്യയ്ക്കുവേ ി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖ്ലെയും മ്യാൻമറിനുവേ ി വിദേശകാരൃ മന്ത്രാലയം സ്ഥിരം സെക്രട്ടറി യു മൈന്റ്തൂ വുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഉഭയകക്ഷി ബന്ധത്തെകുറിച്ച് ഇരുവിഭാഗങ്ങളും ചർച്ച നടത്തി വാണിജ്യ വ്യാപാര സാംസ്കാരിക ബന്ധവും അതിർത്തി സംബന്ധമായ വിഷയങ്ങളുമാണ് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത് ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ര ് രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു മ്യാന്റ്മ്ർ ് വിദേശകാര്യ സെക്രട്ടറി ഡൽഹിയിലെ ചരിത്രപരവും സാംസ്കാരിക പരവുമായ പലസ്ഥലങ്ങളും സന്ദർശിച്ചു

പൂനെയിലെ കോടതിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത് അറസ്റ്റിലായവർക്ക് മാവോയിസ്റ്റ് ബന്ധമുടെ ന്ന് പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തി ബുധനാഴ്ചയായിരുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് പൂനെ നാഗ്പൂർ ഡൽഹി പൊലീസ് സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രവർത്തകരായ റോണ ജേക്കബ് വിൽസൺ സുധീർ ദവാലെ ഷോമാസെൻ മഹേഷ് റാവത്ത് സുരേന്ദ്ര ഗാർഡ്ലിങ്ക് എന്നിവർ പിടിയിലാകുന്നത് ഗുജറാത്തിൽ നിന്നുളള സ്വതന്ത്ര എംഎൽഎ ജിഗ്നേഷ് മേവാനിയും പൂനെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്

മുഖ്യമന്ത്രിയുടെ പരാമർശം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ പി

ഇതിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിലേക്കിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് സഭ ബഹിഷ്ക്കരിച്ചു മറുപടി പറയുവാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം ഇക്കാര്യം സമ്മതിക്കാൻ തയ്യാറായില്ല ആലുവ സ്വതന്ത്ര റിപ്പബ്ലിക് അല്ലെന്ന പരാമർശം ആലുവക്കാരെ മുഴുവൻ അപമാനിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾക്കോ ആലുവക്കാർക്കോ തീവ്രവാദ ബന്ധമു ന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപട്ടി ഫ്നിൽകി ഇക്കാര്യത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രേഖകൾ ഒത്തുനോക്കിയതിന് ശേഷം മാത്രമേ ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യവിതരണം നടത്തുന്നുള്ളൂ

അടുത്തവർഷം മാർച്ചോടെ നിർമാണ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്

ഇന്ന് വൈകിട്ടാണ് മത്സരം മറ്റ് സെമി ഫൈനലിൽ എട്ടാം സീഡ് താരമായ ഡൊമിനിക് തീയം ഇറ്റലിയുടെ മാർക്കോ സെചിൻടോയെ നേരിടും